ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായക മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി

എല്ലിൽ ഇന്ന് ഇൌസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ പോരാട്ടം

സ്പയ്യം പര്യാപ്തമായ ഇന്ത്യയ്ക്ക് പുതിയ മന്ദിരം സാക്ഷ്യം വ്യഹിക്കുമെന്നു പറഞ്ഞ പ്രധാനമന്ത്രി ജനാധിപത്യ ഇന്ത്യയൂട്ട് ചരിത്രത്തിലെ നിർണായക മുഹൂർത്തമാണിതെന്നും സംവിധാനങ്ങളോടു കൂടിയ പുതിയ മന്ദിരം പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഭരണഘടനാ ചുമതലകളുടെ വിജയകരമായ നടത്തിപ്പിന് പുതിയ മന്ദിരം സഹായകരമാവുമെന്നും സ്പീക്കർ പറഞ്ഞു

പ്രധാനമന്ത്രിയ്ക്കും ലോക്സഭാ സ്പീക്കർക്കും പുറമേ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൻ സിംഗ് കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് പ്രഹ്ലാദ് ജോഷി ഹർദീപ് സിംഗ് പുരി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു

ആധുനിക ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് യോജിച്ച രീതിയിൽ നിർമിക്കുന്ന ഈ മന്ദ്രിൽ നിലവിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപമാകും നിലകൊള്ളുക അത്യാധുനിക രീതിയിൽ ത്രികോണാകൃതിയിലാകും മന്ദിരം നിർമ്മിക്കുക ഇപ്പോഴുള്ള മന്ദിരത്തേക്കാൾ മൂന്നിരട്ടി വലിപ്പമുണ്ടാകും പുതിയ മന്ദിരത്തിന് പരിസ്ഥിതി സൌഹൃദവും അതീവ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയതുമായ മന്ദിരമാവും ഇത് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്നതരത്തിലുള്ള ബൃഹത്തായ ഭരണഘടനാ ഗ്യാലറിയും പുതിയ മന്ദിരത്തിലുണ്ടാവും

പാർലമെന്റ് സമിതികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും വേണ്ടി കൂടുതൽ മുറികളും പുതിയ മന്ദിരത്തിൽ ഒരുക്കും ഇന്ത്യയുടെ സംസ്കാര വൈവിധ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രാദേശിക കലാവസ്തുക്കൾ പുതിയ മന്ദിരത്തിൽ പ്രദർശിപ്പിക്കും

ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ സുപ്പർണ്ണ് അക്ഷരങ്ങളിൽ എഴുതേണ്ട ദിവസമാണിതെന്നും ഉപരാഷ്ട്രപ്പതി പറഞ്ഞു

മണ്ഡി സംവിധാനത്തിന്റെ ബന്ധനത്തിൽ നിന്നും കർഷകരെ മോചിപ്പിച്ച് എവിടെയും ആർക്കും സ്വയം തീരുമാനിക്കുന്ന വിലയ്ക്ക് കാർഷികോത്പന്നങ്ങൾ വിൽക്കാൻ സംവിധാനം ഒരുക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ മാധ്യമങ്ങളോട് പറഞ്ഞു കർഷകരുടെ വിമർശനങ്ങളോട് തുറന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്

എന്നാൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർഷക നേതാക്കൾ തള്ളിക്കളഞ്ഞതായും നിയമം പിൻവലിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നതായും കൃഷി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു

വിഷയം കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് ്കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

കൊച്ചിയാണ് കേരളത്തിൽ നിന്നുമുള്ള പുറപ്പെടൽ കേന്ദ്രം

കേന്ദ്ര വിദേശകാരൃ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ള അടുത്തിടെ നടത്തിയ നേപ്പാൾ സന്ദർശനത്തിനിടെ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് തീരുമാനം

ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ

തുല്യതയും അന്തസ്സും ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ഉറപ്പുവരുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം കോവിഡ് പശ്ചാത്തലത്തിൽ വിർചൽ ആയാണ് ഇക്കുറി ദിനാചരണം

ഗോവയിലാണ് മത്സരം പുരോഗമിക്കുന്നത് ഒരു മത്സരം പോലും വിജയിക്കാനാകാതെ പോയിന്റ് പട്ടികയിൽ അവസാനം നിൽക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ

സ്കൂൾ പരീക്ഷകൾ എൻട്രൻസ് പരീക്ഷകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യാർഥികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു